എം ജമ്മുകശ്മീർ പത്തുവർഷത്തിനകം ഇന്ത്യയിലെ ഏറ്റവും വികസിച്ച സംസ്ഥാനമാകു മെന്ന് ആ ഭ്യ ന്ത ര മന്ത്രി അമിത്ഷാ

ഉച്ചകഴിഞ്ഞ് മൂന്നുവരെ നാമനിർദേശ പത്രിക പിൻവലിക്കാം

പത്തുവർഷത്തിനകം ജമ്മുകശ്മീർ ഇന്ത്യയിലെ ഏറ്റവും വിക സിച്ച സംസ്ഥാനമാകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറി യിച്ചു ന്യൂഡൽഹിയിൽ നിന്ന് ജമ്മുകശ്മീരിലെ കത്രയിലേക്ക് സെമി ഹൈസ്പീഡ് ട്രെയിൻ സർവീസ് വന്ദേഭാരത് എക്സ്പ്രസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മഹാത്മാഗാന്ധിയുടെ സ്വദേശി എന്ന ആശയത്തിൽ പൂർണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ട്രെയിൻ ആണിത്

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവരുമായി ഷെയക്ക് ഹസീന നാളെ കൂടി ക്കാഴ്ച നടത്തും സംസ്ഥാനത്തെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ചിത്രം ഇന്ന് വ്യക്തമാകും ഉച്ചകഴിഞ്ഞ് മൂന്നുവരെ നാമനിർദേശ പത്രിക പിൻവ ലിക്കാം

ഐ എം നേതൃത്വം നൽകുന്ന എൽ ഡി എഫും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു

എഫും എൻ

ജെ പി യും തമ്മിലാണ് പ്രധാന മത്സരം മൂന്നുമുന്നണി കളും അഞ്ച് മണ്ഡലങ്ങളിലെ പ്രചാരണരംഗം കൊഴുപ്പിക്കുന്ന തിന് സജീവമായി രംഗത്തുണ്ട് പാലായിലെ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആത്മവിശ്വാ സവുമായാണ് എൽ ഡി എഫ് മത്സരിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി യു ഡി എഫ് തെരഞ്ഞെ ടുപ്പിനെ നേരിടുമ്പോൾ കേന്ദ്രഗവൺമെന്റ് നടപ്പാക്കുന്ന പദ്ധതി കളുടെ പിൻബലത്തിലാകും എൻ

എ പ്രചാരണരംഗത്ത് ചുവട് ഉറപ്പിക്കുക

സംസ്ഥാനത്തെ അഞ്ചുമണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിന് പത്ത് കമ്പനി കേന്ദ്രസേനയെ നിയോഗിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നൽകി ഓരോ മണ്ഡലത്തിലെയും സേന യുടെ എണ്ണം സംബന്ധിച്ച് ഡി ജി പി അടുത്തദിവസം തീരുമാന മെടുക്കും സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്ത ലത്തിൽ മരടിലെ ഫ്ളാറ്റു കളിൽ നിന്ന് താമ സ ക്കാർ ഒഴിഞ്ഞു പോകുന്നതിന് നിശ്ചയിച്ച സമയപരിധി ഇന്ന് തീരും

കോടതിവിധി മാനി ക്കാതെ ഫ്ളാറ്റുകളിൽ കഴിയുന്നവർ നിയമനടപടി നേരിടേണ്ടിവ രുമെന്ന് നഗരസഭയും ജില്ലാഭരണകൂടവും മുന്നറിയിപ്പ് നൽകിയി ട്ടുണ്ട്

ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ ആചാര ലംഘ നത്തോട് യോജിപ്പില്ലെന്ന് സി

എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു അഞ്ച് നിയമസഭാമണ്ഡ ലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ശബരിമല പ്രശ്നത്തെ ആശ്രയി ച്ചാണെന്നത് വെറും പ്രചാരണങ്ങൾ മാത്രമാണെന്നും കോടിയേരി ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു പാലാരിവട്ടം മേൽപ്പാലം അഴിമതി കേസിൽ പൊതുമരാമത്ത് വകുപ്പ് മുൻ സെക്രട്ടറി ടി ഒ സൂരജ് അടക്കം നാല് പ്രതികളുടെയും റിമാൻഡ് കാലാവധി നീട്ടി

പ്താസ്റ്റിക് സഞ്ചികൾക്ക് പകരം തുണിസഞ്ചി കരുതുന്ന പഴയകാല രീതി തിരികെ കൊണ്ടുവരണ മെന്ന് മന്ത്രി ജെ മേഴ് സിക്കുട്ടിയമ്മ പറഞ്ഞു

പ്താസ്റ്റിക് മാലിനൃങ്ങളുമായി വീട്ടിലെത്തുന്ന പുതിയ രീതി പരിസ്ഥിതിക്ക് ഒട്ടും ഭൂഷണമല്ല

വിവാഹാ ഘോഷങ്ങൾ അടക്കം വീട്ടിലെ എല്ലാ ചടങ്ങുകളിലും ഹരിതചട്ടം പാലിക്കാൻ ശ്രമിക്കണമെന്നും മേഴ്സിക്കുട്ടിയമ്മ നിർദേശിച്ചു

ലൈഫ് ഭവന പദ്ധതി പ്രകാരം പെരിന്തൽമണ്ണ തിരൂർ പൊന്നാനി നഗരസഭകളിലും പാണ്ടിക്കാട് ആലങ്കോട് പഞ്ചായത്തുകളിലുമാണ് ഫ്ളാറ്റുകൾ നിർമ്മിക്കുന്നത് പെരിന്തൽമണ്ണയിൽ നഗരസഭ കണ്ടെത്തിയ ഏഴ് ഏക്കർ ഭൂമിയിൽ നിർമ്മാണം ആരംഭിച്ചു സമ്പദ് മേഖലയുടെ ഉത്തേജനത്തിന് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച വായ്പാമേളയുടെ ആദ്യഘട്ടം ഇന്ന് തുട ങ്ങും

ചില്ലറ ഉപഭോക്താക്കൾക്കും ചെറുകിട സംരം ഭങ്ങൾക്കും ആവശ്യത്തിന് വായ്പകൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം കാർഷിക ഭവന വാഹന വിദ്യാഭ്യാസ വൃക്തിഗത ചില്ലറ വായ്പകൾ ആവശ്യത്തിന് അനുവദിക്കാൻ ബാങ്കുകൾക്ക് ഗവൺമെന്റ് നിർദേശം നൽകിയിട്ടുണ്ട്

എക്സ് മീഡിയ കേസിൽ മുൻ ധനമന്ത്രി പി

ചിദംബരം നേരത്തെ നൽകിയ ജാമ്യാപേക്ഷ ഡൽഹി ഹൈക്കോടതി തള്ളിയിരുന്നു കസ്റ്റഡി കാലാവധി നീട്ടാൻ സി ബി

എക്സ് മീഡിയ ഗ്രൂപ്പിന് പരിധിയിൽ കവിഞ്ഞ വിദേശ നിക്ഷേപം അനുവദിച്ചു വെന്ന് ആരോപിച്ചാണ് സി ബി ഐ കേസെടുത്തത് വിശാഖപട്ടണത്ത് ദക്ഷിണാഫ്രിക്കയ് ക്കെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ മികച്ച സ്കോറിലേക്ക്

ഭീകരാക്രമണ ഭീഷണിയെ തുടർന്ന് ഡൽഹിയിൽ പൊലീസ് കനത്ത സുരക്ഷ ഏർപ്പെടുത്തി ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ പൊലീസ് പരിശോധന തുടരുകയാണ് ജെയ്ഷെ മുഹമ്മദ് ഭീകരർ ഡൽഹിയിൽ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിട്ടുണ്ടെന്ന ഇൻറലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന

വിനോദ സഞ്ചാരകേന്ദ്രങ്ങൾ കാണാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ടൂറിസം എന്ന സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കുക എന്നിവയാണ് പര്യടൻ പർവ്വിന്റെ ലക്ഷ്യം

മുതിർന്ന പൌരന്മാരുടെ സേവന പ്രവർത്തനങ്ങൾക്കായി നൽകുന്ന വയോശ്രേഷ്ഠ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും

പി രാത്രി കോഴിക്കോട്ടെത്തും നാളെ സുൽത്താൻ ബത്തേരിയിൽ അദ്ദേഹം നിരാഹാര സമരത്തെ അഭിസംബോധന ചെയ്യും തുടർന്ന് കൽപറ്റ കളക്ടറേറ്റിൽ ചേരുന്ന യോഗത്തിലും രാഹുൽ പങ്കെടുക്കും

ജെ പി പ്രവർത്ത കർ ആക്രമിച്ചെന്ന അഗ്നിവേശിന്റെ പരാതിയിലാണ് പൂജപ്പുര സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തത് തമിഴ്നാട് തിരുച്ചിറപ്പള്ളിയിൽ ജല്ലറിയുടെ ഭിത്തി തുരന്ന് കവർച്ച നടത്തിയ കേസിൽ അഞ്ച് ജാർഖണ്ഡ് സ്വദേശികൾ കോയമ്പത്തൂരിൽ പിടിയിലായി

കാല വർഷം പിൻവാങ്ങുന്നതിന്റെ ലക്ഷണങ്ങൾ പ്രകടമായിട്ടുണ്ടെന്നും ഒരാഴ്ചയ്ക്കകം കാലവർഷം പൂർണമായും പിൻവാങ്ങുമെന്നും നിരീക്ഷണകേന്ദ്രം അറിയിച്ചു ബിംബശുദ്ധി ചടങ്ങുകൾ നടക്കുന്നതിനാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്നും നാളെയും ദർശനത്തിന് രണ്ടരമണിക്കൂർ നിയന്ത്രണമേർപ്പെടുത്തി ഇന്ന് വൈകിട്ട് ദീപാരാധനയ്ക്കുശേഷം രാത്രി ഒമ്പതു വരെയും നാളെ രാവിലെ ശീവേലിക്ക് ശേഷം ഒമ്പതര വരെയും ഭക്തർക്ക് നാലമ്പലത്തിലേക്ക് പ്രവേശനമില്ല പുറമേ നിന്നും ദർശനം നടത്താം തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോ

തീവ്രപരിചരണ വിഭാഗത്തിൽ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് ആർച്ച് ബിഷപ്പ് സ്വർണവിലയിൽ ഇന്ന് നേരിയ വർധന

കഴിഞ്ഞ മാസം നാലിനായിരുന്നു സ്വർണത്തിന് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്ക് രേഖപ്പെടുത്തിയത് കേന്ദ്ര ധനകാര്യ സേവന വിഭാഗത്തിന്റെ നിർദേശ പ്രകാരം കൊല്ലം ജില്ലയിൽ ഇന്ത്യൻ ബാങ്ക് സംഘടിപ്പിക്കുന്ന ദിദിന മെഗാ വായ്പാ മേളയ്ക്ക് തുടക്കം

കാർഷിക വ്യവസായ ഭവന വാഹന വായ്പകൾക്ക് അപേക്ഷിക്കുന്നതിനും അനുവദിച്ച വായ്പകൾ കൈപ്പറ്റുന്നതിനും സൌകര്യമുണ്ട് മേള നാളെ സമാപിക്കും പഞ്ചാബ് നാഷണൽ ബാങ്ക് സേവിംഗ്സ് അക്കൌണ്ടിന്റെയും സ്ഥിരം നിക്ഷേപത്തിന്റെയും പലിശ നിരക്കുകൾ പുതുക്കി നിശ്ചയിച്ചു

നിരക്കുകൾ ചൊവ്വാഴ്ച പ്രാബല്യത്തിൽ വന്നു ഓഹരി വിപണിയിൽ നഷ്ടം തുടരുന്നു

ജമ്മുകശ്മീർ ലിബറേഷൻ ഫ്രണ്ട് നേതാവ് യാസിൻ മാലിക്ക് അടക്കം വിഘടനവാദി നേതാക്കൾക്കെതിരെ യു

എ പ്രകാരം ഇന്ന് കുറ്റപത്രം നൽകും ഭീകരപ്രവർത്തനത്തിന് പാക്കി സ്ഥാനിൽ നിന്നും പണം സ്വീകരിച്ചെന്ന കേസിലാണ് ഇവർക്കെ തിരെ യു എ

എ ചുമത്താൻ ആഭ്യന്തരമന്ത്രാലയം കഴിഞ്ഞ ദിവസം എൻ